കമാൻഡർമാരുടെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ കെവാദിയയിൽ എത്തി

ഒരുങ്ങവെ കേന്ദ്ര സർക്കാർക്ക് പ്പ്ധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ദേശീയ ക്ട്മ്മിറ്റി രൂപീകരിച്ചു

പുരോഗമിക്കുന്നു വിവിധ കേന്ദ്ര മന്ത്രിമാരടക്കമുള്ളവർ വാക്സിൻ സ്വീകരിച്ചു

കൂടുതൽ വിവരങ്ങളുമായി കിരൺ ശങ്കർ വോയ്സ് ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി ഗവർണർ ആചാര്യ ദേവ്രാത്ത് ഉപമുഖ്യമന്ത്രി നിതിൻ പട്ടേൽ തുടങ്ങിയവർ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ എത്തിയ പ്രധാനമന്ത്രിയെ സ്ഥീകരിച്ചു ഏത് വെല്ലുവിളിയും ന്റേരിടാൻ സജ്ജമാകാനും ഭാവിയിലേക്കായി പുതിയി തന്ത്രങ്ങൾ ക്രിമനയാനും പ്രധാനമന്ത്രി സൈനിക കമാൻഡർമാർക്ക് പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ കര് വ്യോമ നാവിക സൈന്യത്തിലെ ചീഫ് കമാൻഡർതല ഉദ്യോഗസ്മുരാണ് കമാൻഡർമാരുടെ ത്രിദിന സമ്മേളനത്തിൽ പങ്കെടുക്കൂന്നത് ് സംയുക്ത സേനാ മേധാവി ജനറൽ ബിപിൻ റാവിത്ത് കരസേനാ മേധാവി ജനറൽ എം

ബദൌരിയ നേവി ചീഫ് ്രുഅഡ്മിറൽ കരംബീർ സിംഗ് എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള വിവിധ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ സ്വാതന്ത്ര്യദിന വാർഷികം സമുചിതമായ രീതിയിൽ ആഘോഷിക്കുന്നതിനും ദേശീയ അന്തർദേശീയ തലത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനുമുള്ള നിർദ്ദേശങ്ങൾ കമ്മിറ്റി രൂപീകരിക്കും

ആസാദി കാ അമൃത് മഹോത്സവ് എന്ന പേരിലായിരിക്കും പരിപാടികൾ സംഘടിപ്പിക്കുക

മധ്യപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പ്പട്ടേർ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവർ ചടങ്ങിൽ പ്ക്കെടുത്തു

ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയ യാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം തിരുവനന്തപുരത്തെത്തുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായതിന് ശേഷം ആദൃമായാണ് ശ്രീ

നാളെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും

അമിത് ഷാ ബിജെപി കോർ കമ്മിറ്റി യോഗത്തിലും ശ്രീരാമകൃഷ്ണ മഠത്തിൽ നടക്കുന്ന സന്യാസി സംഗമത്തിലും പങ്കെടുക്കും

ഇത് കിഴക്കൻ ലഡാക്ക് മേഖലയിൽ നിന്ന് ഇരു സൈന്യങ്ങളുടെയും പിന്മാറ്റത്തിന് വഴി തെളിയിക്കുമെന്നും പ്രദേശത്ത് സമാധാനവും ശാന്തിയും പുനസ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുമെന്നും വിദേശകാരൃ വക്താവ് അനൂരാഗ് ശ്രീവാസ്തവ പറഞ്ഞു

ജെ

ജെ

ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പ് പുറത്തിറക്കി

യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി സ്റ്റേഷനുകളിലെ തിരക്ക് ഒഴിവാക്കാനാണ് നടപടിയെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു ടിക്കറ്റ് നിരക്ക് വർദ്ധന കാലാകാലങ്ങളായി ഏർപ്പെടുത്തുന്നതാണെന്നും റെയിൽവേ അറിയിച്ചു

കേന്ദ്ര മന്ത്രിമാരായ നിതിൻ ഗഡ്കരി നരേന്ദ്ര സിംഗ് തോമർ സതാനന്ദ ഗൌഡ എന്നിവർ ഇന്ന് കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചു ടിബറ്റൻ ആത്മീയ ആചാര്യൻ ദലൈലാമ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിൽ വച്ച് വാക്സിൻ സ്വീകരിച്ചു

ത്രിദിന സന്ദർശനത്തിനിടെ ഇന്ന് മാർപ്പാപ്പ ആയതൊള്ള അൽ സിസ്ത്രാനിയുമായി കൂടിക്കാഴ്ച നടത്തും

കുറ്റാരോപിതരായ നാല് സ്ത്രീകൾക്ക് ജീവപരൃന്തം ശിക്ഷയും വിധിച്ചിട്ടുണ്ട്

എൽ ൽ ഇന്ന് നടക്കുന്ന രണ്ടാം സെമി ഫൈനൽ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എ

ഗോവയിലെ ജി

വി സിന്ധു കിഡംബി ശ്രീകാന്ത് എന്നിവർ സിസ്ട് ഓപ്പണിന്റെ സെമി ഫൈനലിലേക്ക് കടന്നു